ശ്രീധരൻപിള്ളയുടെ വെളിപ്പെടുത്തലിൽ തന്ത്രിയോട് വിശദീകരണം തേടുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്

ശബരിമലയിൽ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ കേരളം അതിനുപറ്റിയമണ്ണല്ലെന്ന് വൈകാതെ തിരിച്ചറിയുമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു കേരളത്തിന്റെ പുറത്ത് പയറ്റിതെളിഞ്ഞ കാര്യ ങ്ങൾ ഈ മണ്ണിൽപറ്റുമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം കൊയിലാണ്ടി യിൽ മാധ്യ മ പ്രവർത്ത ക രോട് പറഞ്ഞു ശബരിമലയിൽ കാര്യങ്ങൾ ഇപ്പോൾ സമാധാനപരമാണെന്നും പൊലീസ് നിയന്ത്രണത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല ശാന്തമായി നിലനിൽക്കണം അതിനുവേണ്ടി മാത്രമാണ് പൊലീസ് പ്രവർത്തിക്കുന്ന തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിൽ പൊലീസ് മാധ്യമങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും പിണറായി വൃക്തമാക്കി

ഇന്നലെ വൈകീട്ടാണ് സന്നിധാനത്ത് നട തുറ ന്നത് ഇന്ന് പുലർച്ചെ മുതൽ അഭിഷേക ചടങ്ങുകൾ ആരംഭിച്ചു

പുതിയ മേൽശാന്തിമാർായിരിക്കും പിറ്റേന്ന് വൃശ്ചികം ഒന്നിന് നട തുറക്കുന്നത് ശബരിമലയിൽ രാവിലെ ദർശനത്തിനെത്തിയ സ്ത്രീയുടെ പ്രായം സംബന്ധിച്ച് സംശയം ഉയർന്നതിനെതുടർന്ന് നടപന്തലിൽ പ്രതിഷേധമു യർന്നു

ലളിതയുടെ പരാതിയിലാണ് നടപടി മകന്റെ കുട്ടിയുടെ ചോറൂണിനായി സന്നിധാനത്ത് എത്തിയ ലളിതയെ നടപ്പന്തലിൽ തടയുകയായിരുന്നു

യുവതി പ്രവേശനത്തെ ചൊല്ലി പ്രതിഷേധത്തിനിടെ ശബരിമലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കൈയേറ്റശ്രമം നടന്നു

ഒരു വാർത്താചാനൽ സംഘത്തിന്റെ ക്യാമറ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു

ശ്രീധരൻപിള്ള യുടെ പ്രസ്താവന സംബന്ധിച്ച് തന്ത്രിയോട് വിശദീകരണം തേടുമെന്ന് തിരുവിതാംകൂർ ദേവസ്വംബോർഡ് പ്രസിഡന്റ് എ

ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇട പെടൽ ഇല്ലെന്ന് അദ്ദേഹം ആറന്മുളയിൽ വാർത്താലേഖകരോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ദേവസ്വംബോർഡ് തന്നെയാണ് തീരുമാനമെടുക്കുന്ന തെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യ ത്തിൽ മാത്രമാണ് ഗവൺമെന്റ് ഇടപെടുന്നത് മറ്റ് കാര്യങ്ങളിൽ തന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ചാണ് തീരുമാനമെടുക്കു ന്നതെന്നും പത്മകുമാർ പറഞ്ഞു ദർശന സമയത്തിന് നിയന്ത്രണംവെച്ചി ട്ടില്ലെന്നും ഹരിവരാസനംപാടി നട അടയ്ക്കുംവരെ ദർശനം അനുവദി ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മുമ്പ് മാസപൂജ ഉണ്ടായിരുന്നില്ല ദേവ സ്വംബോർഡിന്റെ തീരുമാനപ്രകാരമാണ് പിന്നീട് അത് തുടങ്ങിയതെന്നും പത്മകുമാർ അറിയിച്ചു നിലയ്ക്കലിൽ ബിജെപി നേതാക്കളും പൊലീസും തമ്മിൽ വാക്കു തർക്കമുണ്ടായി സന്നിധാനത്തേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാ ത്തതിനെ ബിജെപി നേതാക്കളായ ടി

കൃഷ്ണദാസും എ

രാ ധാകൃഷ്ണനും ചോദ്യം ചെയ്തതാണ് തർക്കത്തിനിടയാക്കിയത് ഭക്തരെ തടഞ്ഞുനിർത്തി നൂറുകണക്കിന് സ്വകാര്യവാഹനങ്ങൾ സന്നി ധാനത്തേക്കുപോകാൻ അനുമതി നൽകിയത് ഏതടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്ന് ടി

കൃഷ്ണദാസ് പിന്നീട് മാധ്യപ്രവർത്തകരോട് പറഞ്ഞു നിയമം അനുസരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ ഒരു കൂട്ടർക്കുമാത്രമായി സ്വകാര്യവാഹനങ്ങളിൽ പമ്പയിലേക്ക് യാത്ര അനു വദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമൂല് തീർഥാടനകാലത്ത് കുറ്റിപ്പുറം മിനി പമ്പയിൽ തീർഥാടകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വൈകീട്ട് യോഗം ചേരും ജനപ്രതിനിധികൾ പോലീസ് തദ്ദേശ റവന്യു വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ സംഘടന പ്രതിനിധികൾ പങ്കെടുക്കും ശബരിമല തീർത്ഥാടകരുടെ മലബാറിലെ പ്രധാന ഇടത്താവളമാണ് കുറ്റിപ്പുറം ഭാരതപ്പുഴയോരത്തെ മിനി പമ്പ വിവാദപ്രസംഗം നടത്തിയ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുക്കണമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും കെ

സി

മുരളീധരൻ ആവശ്യപ്പെട്ടു അറസ്റ്റ് ചെയ്താൽ പിണറായിയുടെ ഗൂഡാ ലോചന പിള്ള തുറന്നുപറയുമോ എന്ന് പേടിയുണ്ടെന്നും അദ്ദേഹം കോഴി ക്കോട്ട് പറഞ്ഞു

ഐ എം ഉം ബിജെപിയും ഒത്തുകളിക്കുകയാ ണെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ശബരിമല വിഷയത്തിൽ എൽഡിഎഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകീട്ട് കോഴിക്കോട്ട് നടക്കും മുതലക്കുളം മൈതാനിയിൽ ചേരുന്ന യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ നിലപാട് വൃക്തമാക്കി വിവിധ ജില്ലാകേന്ദ്രങ്ങളിൽ എൽഡിഎഫ് നടത്തി വരുന്ന വിശദീകരണ യോഗ ത്തിന്റെ ഭാഗമാണ് കോഴിക്കോട്ടെ പരിപാടി നെയ്യാറ്റിൻകരയിൽ ഡിവൈഎസ്പി ഹരികുമാർ റോഡിലേക്ക് തള്ളി യിട്ട യുവാവ് സനൽ മറ്റൊരുവാഹനം കയറി മരിച്ച സംഭവം ഗവൺമെന്റ് ഗൌരവമായാണ് കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംഭവിക്കാൻ പാടില്ലാത്താണ് സംഭവിച്ചത് ഡിവൈഎസ്പി യെ സസ്പെൻഡ് ചെയ്തതായും അദ്ദേഹം കൊയിലാണ്ടിയിൽ പറഞ്ഞു

യുടെ നേതൃത്വത്തിൽ സംഭവം ഗൌരവമായി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇയാളെ ചുമതലകളിൽ നിന്ന് നീക്കി

ഹരികുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നെയ്യാ റ്റിൻകരയിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗ മിക്കുന്നു കൊടങ്ങാവിള കാവുവിളയിൽ സനൽ ആണ് ഇന്നലെ രാത്രി മരിച്ച ത് കൊടങ്ങാവിളയിലെ ഒരു വീട്ടിലെത്തിയ ഡിവൈഎസ്പി ഹരികുമാറിന്റെ കാറിന് കടന്നുപോകാൻ തടസ്സമായി സനലിന്റെ കാർ പാർക്ക് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാക്ക് തർക്കമുണ്ടാകുകയും ഡിവൈഎസ്പി പിടിച്ചുതള്ളിയ സനൽ റോഡിലേക്ക് വീഴുകയും ചെയ്തു ഈ സമയം എതിരെ വന്ന കാർ ഇടിച്ചാണ് സനൽ മരിച്ചത് കോഴിക്കോട് ചേവായൂരിൽ മന്ത്രി ഡോ

ജലീലിനെ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കരിങ്കൊടി കാണിച്ചത് ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റു മുട്ടലിൽ രണ്ട് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരർ കൊല്ലപ്പെട്ടു ഭീകരപ്ര വർത്തകർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തെതുടർന്ന് തെരച്ചിൽനടത്തിയ സൈന്യത്തിനുനേരെ അവർ നിറയൊഴിക്കുകയായിരുന്നു സുരക്ഷാ സേനയുടെ വെടിവെപ്പിലാണ് രണ്ടുപേർ മരിച്ചത് ഏറ്റുമുട്ടൽ സ്ഥലത്തു നിന്ന് നിരവധി ആയുധങ്ങൾ സുരക്ഷാസേന കണ്ടെടുത്തു കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് ലോക്സഭാ മണ്ഡല ങ്ങളിൽ രണ്ടിടത്ത് കോൺഗ്രസ് ജെഡിഎസ് സഖ്യം വിജയത്തിലേക്ക്

രണ്ട് നിയമസഭാ മണ്ഡ ലങ്ങളിലും കോൺഗ്രസ് ജെ

എസ്

ബിജെപിയുടെ ശക്തികേന്ദ്രമായ ബെല്ലാരിയിൽ കോൺഗ്രസിലെ വി

എസിലെ എൽ ശി വ രാ മ ഗൌഡ ഒരു ല ക്ഷത്തിലധികം വോട്ടു കൾക്കാണ് മുന്നിൽനിൽക്കുന്നത് ശിവമോഗ്ഗയിൽ ബിജെപി സ്ഥാനാർത്ഥി ബി

രാമന ഗര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി യുടെ ഭാര്യയും ജെ

സ്ഥാനാർത്ഥിയുമായ അനിതാ കുമാരസ്ഥാ മി വൻഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ഈ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് പാർട്ടിവിട്ട് കോൺഗ്രസ്സിൽ തിരി ച്ചെത്തിയിരുന്നു ജാംഘണ്ഡിയിൽ കോൺഗ്രസിലെ ആനന്ദ് ന്യാംഗൌ ഡയാണ് വിജയിച്ചത് കേരളമടക്കം ദ്രക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നു തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുളിൽ നിന്ന് വെളി ച്ചത്തിലേക്കും ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന പ്രതീകാത്മകമായ ആഘോഷവേളയാണ് ദീപാവലി ജാതി മത് ഭേദമില്ലാതെ ദീപങ്ങൾ തെളി യിച്ചും മധുരം പങ്കുവെച്ചുമാണ് ദീപാവലി ആഘോഷിക്കുന്നത് വൃക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും പാലിച്ചെങ്കിൽ മാത്രമേ പകർച്ച വ്യാധികളിൽ നിന്ന് കേരളത്തിന് മോചനം ലഭിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൊയിലാണ്ടിയിൽ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മഹാരോഗംപിടിപെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ മരണപ്പെടുന്ന പാവങ്ങളുടെ ദുരവസ്ഥ ഗവൺമെന്റ് വളരെ ഗൌരവമായാണ് കാണുന്നത്

കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ ആളുകൾ ചെന്നാൽ ചികിത്സ ലഭിക്കുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരേ ചികിത്സക്ക് പലതരത്തിലുള്ള ഫീസ് ഈടാക്കുന്ന സ്വകാര്യ ആശുപത്രികളുടെ കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡം കൊണ്ടുവരാൻ ഗവൺമെന്റ് ജാഗ്രത പാലിക്കും ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് മാന്യമായ പരിഗണന ലഭിക്കുന്ന തരത്തിൽ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി കെ കെ ശൈലജ അധ്യക്ഷയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളജിലെ ഡിജിറ്റൽ റേഡിയോഗ്രഫി സംവിധാനവും സ്ട്രോക്ക് യൂണിറ്റും ഇന്ന് ഉദ്ഘാടനം ചെയ്യും

പി രാമകൃഷ്ണനും ഉച്ചകഴിഞ്ഞ് മെഡി ക്കൽ കോളജിലേ ആധുനിക സൌകരൃങ്ങൾ ജനങ്ങൾക്ക് തുറന്നുകൊടു ക്കും മലാപ്പറമ്പിൽ റീജ്യണൽ വാക്സിൻ സ്റ്റോറും മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും ഇന്ധനവിലയിൽ ഇന്നും നേരിയ കുറവ്

നിക്ഷേപകരുടെ ചെക്ക് ഉപയോഗിച്ച് അക്കൌണ്ടിൽ തിരിമറി നടത്തുകയും പണമപഹരിക്കുകയും ചെയ്ത സംഭവത്തിൽ ചങ്ങരംകുളം സബ്ട്രഷറിയിലെ ജീവനക്കാരൻ അറസ്റ്റിലായി

പെൻഷൻകാരുടെ അക്കൌണ്ടിൽ നിന്ന് ആദായ നികുതി ഈടാക്കാനെന്ന് പറഞ്ഞ് ബ്ലാങ്ക് ചെക്ക് വാങ്ങി പണം തട്ടുകയായിരുന്നു തുക സന്തോഷിന്റെയും ഭാര്യയുടെയും അക്കൌണ്ടുകളിലേക്ക് എത്തിയതായി പരിശോധനയിൽ തെളിഞ്ഞിരുന്നു

വൈകീട്ട് ഏഴിനാണ് മത്സരം

തിരുനാവായ നാവമുകുന്ദക്ഷേത്ര കടവിൽ തുലാമാസ വാവുബലിതർപ്പണ ചടങ്ങകൾ പുരോഗമി ക്കുന്നു